പെട്ടെന്നു പ്രഖ്യാപിച്ച ഹർത്താൽ ജനത്തെ വലച്ചു ബിജെ പിയും ആർ എസ്

ശ്രീധരൻപിള്ള

പരസൃമേഖലയിൽ അദ്ദേഹത്തിന്റെ അസാധാരണ വൈഭവം എക്കാലത്തും സ്മരിക്കു മെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

സംസ്ഥാനത്ത് ഹിന്ദുഐകൃവേദിയും ശബരിമല കർമസമിതിയും ആഹ്വാനം ചെയ്ത ഹർത്താൽ പൊതുവെ സമാധാനപരം ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ

ശശികലയെ ഇന്നു പുലർച്ചെ ശബരിമല മരക്കൂട്ടത്ത് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് വൈകീട്ട് ആറുവരെ ഹർത്താൽ ബിജെപി ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടു ണ്ട് പെട്ടെന്നു പ്രഖ്യാപിച്ച ഹർത്താൽ യാത്രക്കാരെ വലച്ചു സ്വകാര്യ ബസ്സുകൾ ഓടുന്നില്ല

എസ് ആർ ടി സി

കെഎസ്ആർടിസി കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർ മൈസൂർ മാനന്തവാടി സുൽത്താൻബത്തേരി എന്നിവിടങ്ങളിലേക്ക് കോൺവോയി അടിസ്ഥാനത്തിൽ സർവീസ് നടത്തി കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കു ന്നു ഹർത്താലിനെ തുടർന്ന് സുൽത്താൻബത്തേരിയിൽ കുടുങ്ങിയ ബാംഗ്ലൂരിൽനിന്നുള്ള കെ

സി ബസുകൾ യാത്ര പുനരാരം ഭിച്ചു പൊലീസ് സംരക്ഷണത്തിലാണ് നാലു കെ എസ്

സി ബസു കൾ കോഴിക്കോട്ടേയ്ക്ക് യാത്രതിരിച്ചത് കണ്ണൂർ ജില്ലയിൽ ഹർത്താൽ സമാധാനപരം കടകൾ രാവിലെ തുറന്നെ ങ്കിലും പിന്നീട് അടച്ചു സ്വകാര്യ ്വാഹനങ്ങൾ അങ്ങിങ്ങ് ഓടുന്നുണ്ട്

എസ് ആർ

യും സ്വകാര്യബസുകളും നിരത്തിലിറങ്ങിയില്ല അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ച ഹർത്താൽ വ്യവസായനഗരമായ കൊച്ചിയിലെ പൊതുജീവിതത്തെ സാരമായി ബാധിച്ചു ദൂരദിക്കുക ളിൽനിന്നെത്തിയവരെ ഹർത്താൽ വല്ലാതെ വലച്ചിരിക്കുകയാണ് സ്വകാ ര്യബസുകളും കെ എസ് ആർ

സി ബസുകളും സർവ്വീസ് നിർത്തിവെ ച്ചെങ്കിലും മെട്രോ സർവ്വീസ് തടസ്സമില്ലാതെ തുടരുന്നുണ്ട്

സ്വകാര്യവാഹനങ്ങളും ഓട്ടോറിക്ഷകളും സർവ്വീസ് നടത്തുന്നുണ്ട് വിവിധ ജില്ലകളിൽ ഇന്നു നടത്താനിരുന്ന ശാസ്ത്രമേളകൾ മാറ്റിവെ ച്ചു വയനാട് ജില്ല സ്കൂൾ കലോത്സവം നാളത്തേക്കുമാറ്റി

ഇന്ന് നടത്താനിരുന്ന ഹയർസെക്കൻറി തുല്യതാ പരീക്ഷ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്

ബിജെപിയും ആർഎസ്എസും പുലർച്ചെ ഹർത്താൽ പ്രഖ്യാപിച്ച് ജന ങ്ങളെ ബന്ദിയാക്കിയെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു പൊറുക്കാനാവാത്ത തെറ്റാണ് ആർ

എസും ബിജെപിയും ചെയ്തി രിക്കുന്നതെന്നും അയ്യപ്പഭക്തർ ഉൾപ്പെടെ ഇതോടെ പെരുവഴിയിലാ യെന്നും അദ്ദേഹം കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

ശബ രിമല തീർത്ഥാനം ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താ നാണ് ആർ എസ് എസും ബിജെപിയും ഗവൺമെന്റും ശ്രമിക്കുന്നതെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി ശബരിമല വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ചുചേർത്ത സർവ്വകക്ഷിയോഗത്തിൽ ഗവൺമെന്റ് നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു സുപ്രീംകോടതി യിൽ സാവകാശഹർജി നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വിട്ടുവീഴ്ച ചെയ്യാതെ മുഖ്യമന്ത്രി കർക്കശനിലപാട് സ്വീകരിച്ചതാണ് സർവ്വകക്ഷി യോഗം പരാജയപ്പെടാൻ കാരണം പിന്നീട് തന്ത്രിയും പന്തളം രാജ പ്രതി നിധിയും ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ അംഗീകരിച്ച മുഖ്യമന്ത്രി എന്ത് ജനാ ധിപത്യ മര്യാദയാണ് കാണിച്ചതെന്നും ഇതേത് നവോത്ഥാനത്തിന്റെ ഭാഗ മാണെന്നും ചെന്നിത്തല ചോദിച്ചു ആശങ്കയോടെയാണ് തീർത്ഥാടകർ ശബരിമലയിൽ പോകുന്നതെന്നും മുഖ്യമന്ത്രിയുടെ ധാർഷ്ഠ്യംമൂലമാണ് ദേവസ്വംബോർഡ് നേരത്തെ പുനപരിശോധനാ ഹർജി നൽകാതിരുന്ന തെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സുപ്രീംകോടതി വിധി മറികട ക്കാനുള്ള ഏകമാർഗും ഭരണഘടനാഭേദഗതിയാണെന്നും അതിന് ബിജെപി മുൻകൈയ്യെടുക്കണ്മെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഉത്തരവാദിത്വങ്ങ ളിൽനിന്ന് ബിജെപി ഒളിച്ചോടുകയാണെന്നും രമേശ് ചെന്നിത്തല കുറ്റ പ്പെടുത്തി ശബരിമല് വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് കാട്ടുനീതിയാണ് നടപ്പാക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധ രൻപിള്ള ആരോപിച്ചു

ശശിക്ലയെ പൊലീസ് അറസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു ശബരിമല ദർശനം അവർക്ക് നിഷേധിച്ചത് നിയ മവിരുദ്ധവും നിന്ദ്യവുമണ് ഈ നില തുടർന്നാൽ സമരം സമീപ സംസ്ഥാ നങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ബിജെപി നിർബന്ധിതരാകുമെന്നും കാര്യ ങ്ങൾ ഗവൺമെന്റ് അരാജകത്വത്തിലേക്ക് എത്തിക്കരുതെന്നും ശ്രീധ രൻപിള്ള പറഞ്ഞു റാന്നി പൊലീസ് സ്റ്റേഷനുമുന്നിൽ ഹിന്ദുഐക്യവേദിയുടെ നേതൃ ത്വത്തിൽ നാമജപ പ്രതിഷേധം നടക്കുകയാണ് പൊലീസ് അറസ്റ്റ്ചെയ്ത ഹിന്ദുഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് കെ

ശശികലയെ വിട്ടയക്ക ണമെന്ന് ആവശൃപ്പെട്ടാണ് പ്രവർത്തകരുടെ പ്രതിഷേധം സ്ഥലത്ത് കൂടു തൽ സേനയെ വിന്യ സിച്ചിട്ടുണ്ട് റാന്നി സ്റ്റേഷ നിൽ കഴിയുന്ന ശശികലയെ വൈകീട്ട് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് റിപ്പോർട്ട് ശബരിമല യുവതീപ്രവേശന വിഷയത്തിൽ സാവകാശ ഹർജി സുപ്രീംകോടതിയിൽ മറ്റന്നാൾ നൽകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അറിയിച്ചു ഇതിനുള്ള നടപടികൾ പൂർത്തിയായതായി അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി ദേവ സ്വംമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പറഞ്ഞു

വിധി നടപ്പാക്കുന്നതിന് സമയപരിധി ആവശ്യപ്പെടില്ലെന്ന് ബോർഡ് അറിയിച്ചു തുലാമാസ പൂജയ്ക്ക് നടതുറന്നപ്പോളുണ്ടായ സംഭവങ്ങളും പ്രളയക്കെടുതി സംബ ന്ധിച്ച വിവരങ്ങളും കോടതിയെ അറിയിക്കും സാവകാശ ഹർജി വൈകാ നുണ്ടായ കാരണവും ബോർഡ് സുപ്രീകോടതിയെ ബോധ്യപ്പെടുത്തും ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് ഉച്ചപൂജയോടനുബന്ധിച്ച് സഹ സ്രകളഭാഭിഷേകങ്ങൾ അൽപസമയംമുമ്പ് നടന്നു സന്നിധാനത്ത് ഭക്തർക്ക് ഏർപ്പെടുത്തിയ് നിയന്ത്രണങ്ങളിൽ പൊലീസ് ഇളവ് വരുത്തി യിട്ടുണ്ട് രാത്രിയിലും കടകളും പ്രസാദ കൌണ്ടറുകളും സന്നിധാനത്ത് തുറന്ന് പ്രവർത്തിക്കും രാത്രിയിലെത്തുന്ന ഭക്തർക്ക് രാവിലെ നെയ്യുഭി ഷേകംവരെ തങ്ങാൻ പൊലീസ് അനുവദിച്ചിട്ടുണ്ട് ഹർത്താൽ ദിനത്തിലും കെ

സി ശബരിമലയിലേക്ക് സർവ്വീസ് നടത്തുന്നുണ്ട് തിരുവനന്തപുരത്ത് ദേവസംബോർഡ് ആസ്ഥാനത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി

പ്രചാരണ സമിതി ചെയർമാൻ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു

ഐ എമ്മും ബിജെപിയും ശബരിമലയുടെ ശത്രുക്കളാണെന്നും ശബരിമല സമാധാന പൂങ്കാവനമാകണമെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിൽ മുന്നൊരു ക്കങ്ങൾ നടത്തുന്ന കാര്യത്തിൽ ഗവൺമെന്റ് പൂർണ്ണ പരാജയമാണെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച് ശബരിമലയിൽ സംഘർഷത്തിന് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ലെന്ന് സി

സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു

സുരക്ഷാപ്ര ശ്നങ്ങളുണ്ടെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ മുന്നറിയിപ്പ് നൽകിയിരു ന്നു നട അടച്ചതിന്ശേഷം സന്നിധാനത്തേക്ക് പോകാൻ ഒരുങ്ങിയത് കൊണ്ടാണ് ഹിന്ദുഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് കെ

ശശിക ലയെ പൊലീസ് അറസ്റ്റ് ചെയ്തതെന്ന് കാനം തിരുവനന്തപുരത്ത് പറ ഞ്ഞു ശബരിമലയിൽ ശാന്തിയും സമാധാനവും വേണമെന്ന് മേൽശാന്തി വി

വാസുദേവൻ നമ്പൂതിരി അഭിപ്രായപ്പെട്ടു സമാധാനത്തിനാണ് ഭക്തർ ശബരിമലയിൽ വരുന്നതെന്നും മണ്ഡലകാലം ഭക്തർക്ക് അതിപ്ര ധാനമാണെന്നും അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പറഞ്ഞു ഇരുമുടിക്കെട്ടുമായി എത്തുന്ന ഭക്തരെ പൊലീസ് അറസ്റ്റ് ചെയ്യുന്നത് അന്യായമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വംബോർഡ് മുൻപ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഭക്തർക്ക് വേണ്ടത്ര സൌകര്യങ്ങൾ ഗവൺമെന്റ് ഒരുക്കിയിട്ടില്ല സുരക്ഷയുടെ പേരിലുള്ള നിയന്ത്രണങ്ങളെ വിമർശിക്കുന്നില്ലെന്നും അദ്ദേഹം പമ്പയിൽ പറഞ്ഞു സംവിധായകനും നടനുമായ അലീഖ് പദംസി മുംബൈയിൽ അന്ത രിച്ചു

റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി സിനി മയിൽ മുഹമ്മദലി ജിന്നയുടെ വേഷമിട്ട പദംസിയെ രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു വൻഹിറ്റായിമാറിയ നിരവധി പരസ്യചിത്രങ്ങളുടെ സംവിധായകനായിരുന്ന അലീഖ് പദംസി പരസ്യമേഖലയിലെ ഓസ്കാ റായി അറിയപ്പെടുന്ന ക്ലിയോ ഹാൾ ഓഫ് ഫേമിൽ ഇടം നേടിയ ഏക ഇന്ത്യക്കാരനാണ്

പരസ്യമേഖലയിൽ അദ്ദേഹത്തിന്റെ അസാധാരണ വൈഭവം എക്കാലത്തും സ്മരിക്കുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ പറഞ്ഞു ശ്രദ്ധേയമായ സംഭാവനകളാണ് അദ്ദേഹം നാടകത്തിന് നൽകിയതെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു കേരള തീരത്ത് വാണിജ്യ യാനങ്ങളും മത്സ്യബന്ധന ബോട്ടുകളും കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാൻ ഗതാഗത വേർതിരിക്കൽ സംവിധാനം സ്ഥാപിക്കാൻ കേന്ദ്ര ഷിപ്പിംഗ് ഡയറക്ടറേറ്റ് ജനറൽ നിർദ്ദേശം നൽകി ഇന്ത്യൻ തീരത്ത് മുമ്പ് ഉണ്ടായ ഇത്തരം കൂട്ടിയിടി സംഭവങ്ങൾ ചരക്ക് കപ്പലുകളുടെ ട്രാഫിക്ക് മാതൃകകൾ അനുയോജ്യമായ കടൽ പാതകൾ നിലവിലെ കപ്പൽ ഗതാഗത തോത് കേരള തീരത്തിന്റെ പ്രത്യേകതകൾ മുതലായവ കണക്കിലെടുത്താണ് നിർദേശത്തിന് രൂപം നൽകിയത് മത്സ്യബന്ധന യാനങ്ങൾക്ക് കടലിൽ കൂടുതൽ പ്രദേശത്ത് സുരക്ഷി തമായ മീൻപിടിക്കാൻ സംവിധാനം വഴിയൊരുക്കും ഗജ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ലക്ഷദ്ധീപിന്റെ തീരങ്ങളിലും രാവിലെമുതൽ ശക്തമായി കാറ്റുവീശി അപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വരുന്ന മൂന്നുദിവസ്ം മത്സ്യതൊഴിലാളികളും തീരദേശവാ സികളും ജാഗ്രതാനിർദ്ദേശം പാലിക്കണമെന്ന് ലക്ഷദ്വീപ് എ ഡി

സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്ന ഫോട്ടോ വീഡിയോ പ്രദർശനത്തിന്റെ ബ്രോഷർ പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നി ത്തല പ്രകാശനം ചെയ്യും എല്ലാ ജില്ലാകേന്ദ്രങ്ങളിലും സപ്ലൈകോ മാളുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി പി തിലോത്തമൻ അറിയിച്ചു ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാറിൽ സപ്ലൈകോ സൂപ്പർമാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കണ്ണൂർ ആസ്ഥാനമായ ഐ

യുടെ നേതൃത്വത്തിൽ തളി പ്പറമ്പിനടുത്ത് ബക്കളം മുഴപ്പിലങ്ങാട് എന്നിവിടങ്ങളിൽ ശബരിമല യാത്ര ക്കാർക്കായി ഇടത്താവളം ഒരുക്കുമെന്ന് ഐ

ചെയർമാൻ പി ജയരാജൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മുഴപ്പിലങ്ങാട് ഇടത്താവളത്തിന്റെ ഉദ്ഘാടനം മറ്റന്നാൾ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവ്വഹിക്കും

ആനയെ കണ്ട് ഓടുന്നതിനിടെ രണ്ടു പേർക്ക് പരിക്കേറ്റു സംസ്ഥാന ഐ

കണ്ണൂർ ജില്ലാതല ഉദ്ഘാ ടനം നാളെ വൈകീട്ട് കണ്ണൂർ സർവ്വകലാശാലയുടെ ചെറുശ്ശേരി ഓഡി റ്റോറിയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവ്വഹിക്കും ദിനാചര ണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ ഒരുക്കിയതായി ജില്ലാ പ്രോജക്ട് മാനേജർ അറിയിച്ചു പുതിയ റോഡ് സംസ്കാരത്തിലൂടെ അപകടരഹിതമായ നല്ല നാളെ എന്ന സന്ദേശത്തിലൂന്നി രാജ്യത്ത് റോഡപകടങ്ങളിൽ മരിച്ചവരെ നാളെ അനുസ്മരിക്കും